ന്യൂഡൽഹിയിൽ പ്രധാ നമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പ്രളയക്കെടുതിയിൽ കേരളം നേരിട്ട ദുരി തങ്ങൾ ഗവർണർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു സാമ്പത്തിക സഹായത്തിനു പുറമെ ഭക്ഷണം വെള ളം മരുന്നുകൾ മറ്റ് പ്രഅവശ്യ സാധനങ്ങൾ തുടങ്ങിയവയും കേരളത്തിന് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രക്ഷാദൌതൃത്തിൽ പങ്കാളിയായ കേന്ദ്രസേനാ വിഭാഗങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിയ സ്വീകരണചടങ്ങ് തിരുവനന്തപുരം ശംഖുമുഖം എയർഫോഴ്സ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അർപ്പണ ബോധത്തോടെ കേരളത്തോടൊപ്പവും ഗവൺമെന്റിനൊപ്പവും സേനാ വിഭാഗങ്ങൾ സമയോചിതമായി സഹായിച്ചില്ലായിരുന്നെ ങ്കിൽ ദുരന്തം ഭയാനകമായേന്നെയെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വിവിധ വിഭാഗങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ആദരം സൂചിപ്പിക്കുന്ന പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി സമ്മാനിച്ചു ലലലലലലലലലലലല അപൂർവമായ ആദരമാണ് സേനാവിഭാഗങ്ങൾക്ക് ലഭി ച്ചിരിക്കുന്നതെന്ന് എല്ലാ സേനാവിഭാഗങ്ങൾക്കും വേണ്ടി മറുപടി പ്രസംഗം നടത്തിയ വ്യോമസേന എയർ ഓഫീ സർ ഇൻ ചാർജ് എയർ മാർഷൽ ബി

ദുരന്തമുഖത്ത് മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളോടെ നയിച്ചത് രക്ഷാപ്രവർത്തനം കൂടു തൽ കാര്യക്ഷമമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ലലലലലലലലലലലല സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശി ക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തുമെന്ന് കെ പി സി സി പ്രസി ഡണ്ട് എം എം ഹസ്സൻ അറിയിച്ചു നാളെയും മറ്റന്നാളുമായി ചെങ്ങന്നൂർ ആലപ്പുഴ ചാലക്കുടി ആലുവ പറവൂർ വയനാട് ജില്ലയിലെ കോട്ടാത്തല എന്നിവിടങ്ങളിലെ പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ ഉച്ചയ്ക്ക് കരിപ്പൂരിൽ നിന്ന് ഡൽഹിക്ക് മടങ്ങും ആലപ്പുഴയിൽ പ്രളയദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ച മത്സ്യ ത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണചടങ്ങിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും

ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എം എം ഹസൻ എന്നി വർ ഓരോ വീട് ദുരിതബാധിതർക്ക് നിർമ്മിച്ചുനൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

ദുരന്തത്തിൽ രക്ഷകരായ എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് കൊച്ചി യിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വ്യക്ത മായ ദിശാബോധത്തോടെയാണ് ഗവൺമെന്റ് മത്സ്യ ത്തൊഴിലാളികളെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കി യതെന്നും മന്ത്രി പറഞ്ഞു

ഇതിന്റെ അടിസ്ഥാ നത്തിൽ പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകളും പിൻവലി ക്കുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തിരുവന്തപുരത്ത് അറിയിച്ചു ലലലലലലലലലലലല സംസ്ഥാ നത്തെ പ്രള യ ക്കെ ടു തിക്കും കനത്ത മഴയ്ക്കും കാരണം കാലാവസ്ഥാ വൃതിയാനമാണെന്ന് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാസ്ത്ര പരിസ്ഥിതി കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും പ്രശസ്ത കാലാ വസ്ഥാ വിദ ഗ് ധ നു മായ ചന്ദ്രഭൂഷൺ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ അണക്കെട്ട് നിയന്ത്രണ സംവിധാനം പുനഃപരിശോധിക്കേണ്ടതു ണ്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു പശ്ചിമഘട്ട ത്തിലേതുൾപ്പെടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംര ക്ഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

തമിഴ്നാട്ടിലാണ് കൂടുതൽ മഴക്കുറവ് രേഖപ്പെടുത്തി യതെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കണ ക്കുകൾ വ്യക്തമാക്കുന്നു

കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നുതുടങ്ങി ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് കിറ്റുകൾ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് വിതരണം ചെയ്യുമെന്ന് മന്ത്രി ഡോ

നാളെയും മറ്റന്നാളുമായി കുട്ടനാട്ടിൽ മഹാശുചീകരണയജ്ഞം നട ത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ലലലലലലലലലലലല മലപ്പുറം ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്

നിലമ്പൂർ കൊണ്ടോട്ടി പൊന്നാനി മേഖലകളിലാണ് ക്യാമ്പുകൾ തുടരുന്നത്

പ്രളയദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങ ളില്ലാതെ ആചാരപരമായ ചടങ്ങുകളാണ് ഇതോടനുബ ന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ജയന്തി സമ്മേളനങ്ങളും ഘോഷയാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്

പ്രളയക്കെടുതിയും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യും

നീന എന്നിവർ മത്സ രത്തിനറങ്ങും

ബാഡ്മിന്റൺ വനിതാസിംഗിൾസ് സെമിയിൽ സൈന നേഹ്വാൾ പി വി സിന്ധു എന്നിവർ മത്സരിക്കും

അടുത്തമാസം രാജസ്ഥാനിൽ നടക്കുന്ന ദേശീയ യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമുകളെ വ്യാഴാഴ്ച വരെ നടക്കുന്ന ചാമ്പ്യൻഷി പ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും

അണക്കെട്ടിലേക്ക് നീരൊഴുക്കു കുറഞ്ഞു

പമ്പയിലെ ഏഎല്ലാ കെട്ടിടങ്ങളിലും പരിശോധന നടത്തി ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കി റോഡ് ്വിവിധ സ്ഥലങ്ങളിൽ അപകടാവ സ്ഥയിൽ ആയതിനാൽ പമ്പയിലേക്ക് വരുന്ന വാഹന ങ്ങൾ അട്ടത്തോട്ടിൽ പൊലീസ് വടം കെട്ടി തടഞ്ഞിരിക്കുകയാണ്

ഇന്നലെ ഉച്ചയോടെ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചി

വധു ഡോക്ടറാണ് കല്യാണപിറ്റേന്ന് കിണ്ണം കട്ട കള്ളൻ തുടങ്ങി ഇരുപതോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്

കുട്ടിയെ ആനക്കയം പാലത്തിൽ നിന്ന് പുഴയിലെറിഞ്ഞതായി പ്രതി സമ്മതിച്ചതിനെ തുടർന്ന് ഷെഹിനുവേണ്ടി കട ലുണ്ടി പുഴയിൽ തെരച്ചിൽ തുടരുകയാണ് കാഞ്ഞ്ങാട് സംസ്ഥാ ന പാ ത യിൽ ഇന്നലെ വൈകീട്ട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രി കനായ യുവാവ് മരിച്ചു കുടക് സ്വദേശിയും കാഞ്ഞ ങ്ങാട് താമസക്കാരനുമായ മുഹമ്മദ് ആഷിഖാണ് മരി ച്ചത് കണ്ണൂർ കോളയാട് സെപ്റ്റിക് ടാങ്കിന് വേണ്ടി നിർമ്മിച്ച കുഴിയിലെ വെളളക്കെട്ടിൽ വീണ് ഒന്നര വയ സ്സുകാരി മരിച്ചു

ലലലലലലലലലലലലല മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ പോലീസ് ഓഫീസർ കൊല്ലത്ത് അറസ്റ്റിലായി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പദ്മരാജനാണ് അറസ്റ്റിലായത് ദേശീയപാതയിൽ കോളേജ് ജംങ്ങ്ഷനുസമീപം ടി വാഹനങ്ങളിലാണ് എ എസ് ഐ യുടെ വാഹനം ഇടിച്ചത്

പത്തനാപുരം പാടം കിഴക്കെ വെളളം കൊളളിയിൽ കമലൻ മലപ്പുറം ജില്ല യിലെ നിലമ്പൂർ കാളികാവിൽ ചോക്കോട് തോട്ടം കാവ ലിൽ ഏർപ്പെട്ടിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി മഹേഷ് എന്നിവരുടെ കുടുംബത്തിനാണ് സഹായം നൽകുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

മന്ത്രി എം എം മണി എം പി എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുക്കും

ജില്ലയിലെ വൻമലയിടിച്ചിലിൽ റോഡുകൾ തകർന്നതും വാർത്ത വിനിമയ സംവിധാനങ്ങൾ തകരാറിലായതും മൂലം മഴക്കെടുതികൾ പുറംലോകം അറിയാൻ വൈകിയതായി കളകൂർ പറഞ്ഞു